പതിനാലാം നിയമസഭയുടെ പതിനാലാം സമ്മേളനം ഇന്ന് സമാ പിക്കും വർഗ്ഗീയതയോട് സമരസപ്പെടുന്ന സ്മീപനം അവസാനിപ്പിച്ച് കോൺഗ്രസ് യഥാർത്ഥ രാഷ്ട്രീയ പാർട്ടിയായി മാറണമെന്ന് മുഖ്യ മന്ത്രി പിണറായി വിജയൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിലെ സീറ്റ് വിഭജനം ഉടൻ പൂർത്തിയാകു മെന്ന് മുന്നണി കൺവീനർ എ വിജയരാഘവൻ

പി സംസ്ഥാന പ്രസി ഡന്റ് പി എസ് ശ്രീധരൻ പിള്ള

കോഴിക്കോട്ട് സേവാഭാരതിയുടെ മഹാലക്ഷ്മി മാതൃസദനം മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ രാവിലെ ഉദ്ഘാടനം ചെയ്യും

വോട്ട് ഓൺ അക്കൌണ്ട് ബില്ലും ധനവിനിയോഗ ബില്ലും ഇതോടൊപ്പം ലോക്സഭ ശബ്ദവോട്ടെടെ പാസ്സാക്കി സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും വേണ്ടിയാണ് എൻ

എ ഗവൺമെന്റ് ബജ റ്റുകളിലൂടെ ശ്രമിച്ചതെന്ന് നേരത്തെ ബജറ്റ് ചർച്ചയ്ക്ക് മറു പടി പറഞ്ഞ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അറിയിച്ചു

കർഷകർക്ക് ഭക്ഷ്യസു രക്ഷ പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്മാൻ നിധി ഉറപ്പാ ക്കുമെന്നും ഗോയൽ പറഞ്ഞു അതേസമയം കർഷകർക്ക് പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ തുച്ഛമാണെന്നും രാജ്യരക്ഷാ മേഖലയ്ക്ക് കുറഞ്ഞ വിഹിത മാണ് അനുവദിച്ചതെന്നും പ്രതിപക്ഷ പാർട്ടികൾ കുറ്റപ്പെടുത്തി

അടുത്ത വർഷത്തെ ബജറ്റും വോട്ട് ഓൺ അക്കൌണ്ടും ഉപ ധനാഭ്യർത്ഥനയും കഴിഞ്ഞ ദിവസങ്ങളിൽ നിയമസഭ പാസ്സാക്കിയിരുന്നു വർഗ്ഗീയതയോടെ സമരസപ്പെടുന്ന സമീപനം അവസാനി പ്പിച്ച് കോൺഗ്രസ് യഥാർത്ഥ രാഷ്ട്രീയ പാർട്ടിയായി മാറണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചു

എമ്മിന് ജയിക്കാൻ കഴിയാ ത്തിടങ്ങളിൽ മതനിരപേക്ഷ പാർട്ടികൾ ജയിക്കണമെന്നാണ് പാർട്ടി കാഴ്ചപ്പാടെന്ന് അദ്ദേഹം വ്യക്തമാക്കി പറവൂർ ഏരിയ കമ്മിറ്റിയുടെ പുതിയ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി മൂന്നാറിലെ അനധികൃത നിർമ്മാണത്തെപ്പറ്റി ഹൈക്കോട തിക്ക് റിപ്പോർട്ട് നൽകുമെന്ന് ദേവികുളം സബ് കലക്ടർ രേണുരാജ് മാധ്യമങ്ങളെ അറിയിച്ചു സ്റ്റോപ് മെമ്മോ നൽകി യിട്ടും പഞ്ചായത്ത് അനധികൃതൃ നിർമ്മാണം തുടരുകയായി രുന്നു കോടതി നിർദ്ദേശങ്ങൾ അവഗണിച്ചാണ് പഞ്ചായത്ത് അനധികൃത നിർമ്മാണം തുടർന്നതെന്ന വസ്തുത കോടതിയെ ധരിപ്പിക്കും ഇത് സംബന്ധിച്ച് അഡക്കറ്റ് ജനറലിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ദേവികുളം സബ് കളക്ടർക്കെതിരെ എസ് രാജേന്ദ്രൻ എം

എയുടെ മോശം പരാമർശം അംഗീകരിക്കുന്നില്ലെന്ന് സി

ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടേറിയേറ്റ് അറിയിച്ചു പാർട്ടിയുടെ കാഴ്ചപ്പാടുകൾക്ക് വിരുദ്ധമാണ് എം

എ യുടെ പരാമർശമെന്ന് അവർ പറഞ്ഞു

എ മാധ്യമങ്ങൾക്കു മുന്നിൽ നടത്തിയ അഭിപ്രായപ്രകടനങ്ങളിലും ജില്ലാ സെക്രട്ടേറിയേറ്റ് വിയോജിപ്പ് അറിയിച്ചു ദേവികുളം സബ് കലക്ടർ ഡോ രേണു രാജിനെ അപമാ നിക്കുന്നവിധം സംസാരിച്ചെന്ന വിഷയത്തിൽ എസ് രാജേന്ദ്രൻ എം എൽ എക്കെതിരെ സംസ്ഥാന വനിതാ കമ്മീഷൻ കേസെ ടുത്തു മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് കമ്മീ ഷൻ സ്വമേധയാ കേസെടുത്തത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിലെ സീറ്റ് വിഭജനം ഉടൻ പൂർത്തിയാക്കുമെന്ന് മുന്നണി കൺവീനർ എ

വിജയ സാധ്യത കണക്കിലെടുത്ത് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ നേതൃയോഗത്തിൽ ധാരണയായതായി അദ്ദേഹം വെളിപ്പെ ടുത്തി

ഇടത് ഗവൺമെന്റിന്റെ പ്രവർത്ത നങ്ങൾ ജനങ്ങളിലെത്തിക്കാനും കേന്ദ്ര നയങ്ങൾക്കെതിരെ ബോധവൽക്കരണം നടത്താനും ഉദ്ദേശിച്ചാണ് ജാഥകളെന്ന് വിജയ രാഘവൻ അറിയിച്ചു അരിയിൽ ഷുക്കൂർ വധക്കേസിൽ സി

എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജനെതിരെ കൊലക്കുറ്റം ചുമത്തിയ സി ബി ഐ കുറ്റപത്രം അവരുടെ കൊലപാതക രാഷ്ട്രീയത്തി നേറ്റ കനത്ത പ്രഹരമാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു ഇനിയെങ്കിലും ഇക്കാര്യത്തിൽ സി

എം പുനർ ചിന്തയ്ക്ക് തയ്യാറാകണമെന്ന് ചെന്നിത്തല തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു ഷുക്കൂർ വധക്കേസിൽ സി

ഐയുടെ കുറ്റപത്ര സമർപ്പണത്തെ സ്ഥാഗതം ചെയ്യുകയാണെന്നും എന്നാൽ അത് വൈകിപ്പോയെന്നാണ് തന്റെ അഭിപ്രായമെന്നും കെ

സി

ആയുധം താഴെ വെയ്ക്കാൻ അണികളോട് പറയുന്നതിന് മുഖ്യമന്ത്രി തയ്യാറാ കണമെന്നും മുല്ലപ്പള്ളി കുറ്റിപ്പുറത്ത് പറഞ്ഞു രാഷ്ട്രീയ എതിരാളികളെ നേരിടാൻ സി

ഐയെ ദുരുപ യോഗം ചെയ്തതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് അരിയിൽ ഷുക്കൂർ വധക്കേസിൽ പി ജയരാജനെയും ടി വി രാജേഷിനെയും പ്രതികളാക്കി സമർപ്പിച്ച അനുബന്ധ കുറ്റപത്രമെന്ന് സി

എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയേറ്റ് ആരോപിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് സി ബി ഐ നടത്തിയ രാഷ്ട്രീയക്കളി യാണ് ഇതെന്ന് സെക്രട്ടേറിയറ്റ് കുറ്റപ്പെടുത്തി ഈ നൂറ്റാണ്ടിലെ കാപട്യത്തിന്റെ ഏറ്റവും വലിയ പ്രതീക ങ്ങളായി ഇടത് വലത് മുന്നണികൾ മാറിയതായി ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പി

എമ്മിനെ കൂടെക്കൂ ട്ടാമെന്ന കെ

സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പ്രസ്താവന ഇതിന് തെളിവാണെന്ന് ശ്രീധരൻപിള്ള കാസർകോട്ട് പറഞ്ഞു

എ ഗവൺമെന്റിന്റെ ഭരണ ട നേട്ടങ്ങൾ വിവരിക്കുന്ന വീഡിയോ പ്രദർശന വാനിന്റെ ഉദ്ഘാടനം നിർവ്വഹിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ യഥാർത്ഥ അക്രമകാരികൾ ആരാണെന്ന് മനസ്സിലാക്കാമെന്ന് ശ്രീധരൻപിള്ള കണ്ണൂരിൽ പറഞ്ഞു

ജെ പി സംസ്ഥാന പ്രസിഡന്റ് കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമിതികൾക്ക് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗ്രാന്ധി രൂപം നൽകി കോൺഗ്രസ് പ്രവർത്തകസമിതി അംഗം എ

ഐ

തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ യു ഡി എഫ് യോഗം ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് ചേരും സംസ്ഥാ നത്തെ പ്രചാരണ പരിപാടികൾക്ക് അന്തിമ രൂപം നൽകാനാണ് യോഗം മുന്നണിയുടെ താഴെതട്ടിലെ കമ്മിറ്റികൾ പുനഃസംഘ ടിപ്പിക്കുന്ന കാര്യവും ഇന്നത്തെ യോഗം ചർച്ച ചെയ്തേക്കും കേന്ദ്ര സംസ്ഥാന ഗവർണ്മെന്റുകളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കേണ്ട ബാധ്യത കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന് കെ

സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു ജനമഹായാത്രക്ക് പാലക്കാട് പട്ടാമ്പിയിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്നും നാളെയും യാത്ര പാലക്കാട് ജില്ലയിൽ പ്ര്യടനം നടത്തും ദേശീയ സീനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിലെ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കേരളത്തിന് മൂന്ന് സ്വർണ്ണം കൂടി ലഭിച്ചു

പെൺകുട്ടി കളുടെ മത്സരം ഇന്ന് സമാപിക്കും

ആൺകുട്ടികളുടെ മത്സരം വെള്ളി യാഴ്ച തുടങ്ങും പ്രോ വോളി ലീഗിൽ കൊച്ചി ബ്ലൂ സ്പൈക്കേഴ്സ് സെമി യിൽ കടന്നു കൊച്ചിയിൽ ചെന്നൈ സ്പാർട്ടൻസിനെ രണ്ടി നെതിരെ മൂന്ന് സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ബ്ലൂ സ്പൈക്കേഴ്സ് സെമിയിൽ സ്ഥാനമുറപ്പിച്ചത് ഇന്ന് യു മുംബൈ ബ്ലാക് ഹോക്സ് ഹൈദരബാദിനെ നേരിടും ഭുവനേശ്വറിൽ ഗോൾഡ് കപ് വനിതാ ഫുട്ബോളിൽ ഇന്ത്യയ്ക്ക് തോൽവി ഗ്രൂപ്പ് റൌണ്ടിലെ രണ്ടാം മത്സരത്തിൽ നേപ്പാൾ ഒന്നിനെതിരെ രണ്ട് ഗോളിനാണ് ഇന്ത്യയെ തോൽപ്പി ച്ചത് ആദ്യമത്സരത്തിൽ ഇന്ത്യ ഇറാനെ തോൽപ്പിച്ചിരുന്നു പൊതു വിദ്യാലയങ്ങളുടെ ഭൌതിക സാഹചര്യം വർദ്ധിപ്പി ക്കുന്നതിന് ചലഞ്ച് ഫണ്ട് നൽകുമെന്ന് മന്ത്രി പ്രൊഫ സി

ഭൌതിക സൌഹചര്യങ്ങൾ വർദ്ധിപ്പിച്ച് ക്ലാസ്മുറികൾ ഹൈടെക് ആക്കുന്നതിലൂടെ പൊതു വിദ്യാല യങ്ങൾ ആധുനികവൽക്കരിക്കും പാലക്കാട് കുലുക്കിലിയാട് എസ്

പി സ്കൂളിലെ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുക യായിരുന്നു മന്ത്രി കോഴിക്കോട്ടെ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച മഹാലക്ഷ്മി മാതൃസദനം ഇന്ന് രാവിലെ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്യും ഒന്നരക്കോടി രൂപ ചെലവിലാണ് ചെറുവറ്റയിൽ മാതൃ സദനം നിർമ്മിച്ചത് സമൂഹത്തിലെ ശരണമറ്റ അമ്മമാർക്ക് സംരക്ഷണം ഉറപ്പാക്കുകയാണ് മാതൃസദനത്തിന്റെ ലക്ഷ്യം

കോളറ ഡിഫ്തീരിയ തുട ങ്ങിയ രോഗങ്ങളുടെ വ്യാപനവും നിയന്ത്രിക്കാൻ സാധിച്ച തായി മന്ത്രി പറഞ്ഞു കുംഭമാസ പൂജകൾക്കായി ശബരിമലയിൽ ഇന്ന് വൈകിട്ട് അഞ്ചിന് നട തുറക്കും മൂന്ന് എസ് പിമാരുടെ നേതൃത്വത്തിൽ കനത്ത സുരക്ഷ ശബരിമലയിൽ ഏർപ്പെടുത്തി യുവതികൾ ദർശനത്തിന് എത്തിയാൽ സുരക്ഷ ഒരുക്കുന്നതിന് പൊലീസ് നടപടിയെടുക്കും

നാരായണൻ ജില്ലാ കലക്ടർക്ക് റിപ്പോർട്ട് നൽകി കട്ടപ്പന ഇ

ഐ ഡിസ് പെൻസറി മറ്റുന്നാൾ വെള്ളയാംകുടിയിൽ മന്ത്രി ടി

രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും മന്ത്രി എം എം മണി ചടങ്ങിൽ അധ്യക്ഷനാകും

എസ് സി പി എസ് സി പരീക്ഷകൾക്ക് തയ്യാറെടു ക്കുന്ന ന്യൂനപക്ഷ ഉദ്യോഗാർത്ഥികൾക്ക് സൌജന്യ പരിശീ ലനം നൽകാൻ ഏഴ് കേന്ദ്രങ്ങൾകൂടി തുടങ്ങാൻ ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചു

കോഴിക്കോട് പേരാമ്പ്ര തലശ്ശേരി വളാഞ്ചേരി പട്ടാമ്പി മട്ടാഞ്ചേരി കായംകുളം കൊല്ലം കണ്ണനല്ലൂർ എന്നിവിടങ്ങ ളിലാണ് പുതിയ കേന്ദ്രങ്ങൾ

നാളെ ഡോ

എൻ കാരശ്ശേരിക്ക് അഞ്ചാമത് അനന്തമൂർത്തി പുരസ്കാരം സമ്മേളനത്തിൽ സമ്മാനിക്കും ഉച്ചകഴിഞ്ഞ് പ്രതിനിധി സമ്മേളനവും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടക്കും സംസ്ഥാന ലീഗൽ സർവീസ് അതോറിറ്റിയുടെ മൊബൈൽ അദാലത്ത് വാൻ ഇന്ന് പാലക്കാട് ജില്ലയിൽ പരൃടനം ആരംഭി ക്കും വിവിധ പഞ്ചായത്തുകളിലായി അടുത്തമാസം രണ്ടുവ രെയാണ് മൊബൈൽ ലോക് അദാലത്ത് പര്യടനം